അവിശ്വാസപ്രമേയത്തിൽ ചർച്ച പുരോഗമിക്കുന്നു

ആഭ്യന്തരമന്ത്രിയും പ്രതിര്യോധമന്ത്രിയും രാഹുൽഗാന്ധിക്കെതിരെ ്ഭരണ്പക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസ്

പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ

ല ഇന്ത്യ നാളെ ഇംഗ്ല ിനെ നേരിടും

തെലുഗുദേശം പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളാണ് പ്രമേയം കൊ ു വന്നത്

എ ഗവൺമെന്റിന് ലോക്സഭയിൽ ഉള്ളത് വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് ശിവസേനയും ബി ജെ ഡിയും വിട്ടുനിൽക്കുകയാണ്

ര ു കോടി യുവാക്കൾക്ക് തൊഴിൽ ന്റ്ർക്കുമെന്ന് വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രി ഇതുവരെ അഞ്ചൂല്ക്ഷം പേർക്ക് മാത്രമാണ് തൊഴിൽ നൽകിയത് റാഫേൽ യുദ്ധവിമാന ഇടപാടിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പു്റത്ത് വിടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വിശദവിവരങ്ങളുമായി നരേന്ദ്രമോഹൻ എൻ ഡി എ ഗവണ്മെന്റിന് എതിരായി പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ ആരോപണങ്ങൾ കേന്ദ്രആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധമന്ത്രി നിർമലാ സീതാരാമനും നിഷേധിച്ചു രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിയിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം കാണാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ശ്രീ രാജ്നാഥ് സിംഗ് ചൂ ിക്കാട്ടി

ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ റഫേൽ വിമാന കരാർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കിയിരുന്നതായി ശ്രീ നിർമല സീതാരാമൻ പറഞ്ഞു കരാറിന് തുടക്കമിട്ടത് യൂപ്പി എ ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പറഞ്ഞ പ്രതിരോധമന്ത്രി കരാർ സംബന്ധിച്ച രേഖകളും സഭയിൽ പ്രദർശിപ്പിച്ചു്

പ്രത്യേക പദവി എന്ന ആവശ്യം സംസ്ഥാനത്തെ പിന്നാക്കാവസ്ഥയിൽ നിന്നും കരകയറാൻ വളരെ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന തരത്തിലുള്ള വൻ അഴിമതി ആരോപണങ്ങളാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഉ ായിരുന്നതെന്ന് ബി ജെ പി എം പി രാകേഷ് സിംഗ് പറഞ്ഞു

ലോക്സഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചക്കിടെ ശ്രീ രാഹുൽഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്ക് എതിരെയാണ് നോട്ടീസ് നൽകുക അവാസ്തവവും അടിസ്ഥാന രഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രീ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായി പാർലമെന്ററികാര്യ മന്ത്രി അനന്ത്കുമാർ വാർത്താലേഖകരോട് പറഞ്ഞു

റുവാ ഉഗാ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജൃങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി റുവാ സന്ദർശിക്കുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി ടി എസ് തിരുമൂർത്തി ന്യൂഡൽഹിയിൽ അറിയിച്ചു

ദക്ഷിണാഫ്രിക്കയിൽ ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നടന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗൃമന്ത്രിമാരുടെ എട്ടാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷയരോഗികൾക്ക് ഫലപ്രദമായ മരുന്നും ചികിത്സയും ലഭ്യമാക്കേ ത് അനിവാര്യമാണ് എന്നും മന്ത്രി പറഞ്ഞു

ഹരിയാനയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും

ഇതേത്തുടർന്നാണ് വ്യാജ സ ന്ദേശങ്ങൾ തടയാൻ കൂടുതൽ കർശനമായ മാർഗ്ഗങ്ങൾ സ്വീകരി ക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏറെ ശ്രദ്ധവേ ുന്ന വിഷയമാ ണിതെന്നും കൂടുതൽ ശക്തമായ പ്രതികര്ണം ഇക്കാരൃത്തിൽ വാട്ട് സാപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്ര ഇലക്ട്രോണിക് ഐടി മന്ത്രാലയം വൃക്തമാക്കി

തങ്ങളുടെ മാധ്യമത്തിലൂടെ പ രക്കുന്ന ഊഹാപോഹങ്ങ്ളുടെയും വ്യാജ വാർത്തകളുടെയും ഉത്തര വാദിത്തത്തിൽ നിന്ന് വാട്ട്സാപ്പിന് ഒഴിഞ്ഞുമാറാനാവില്ല വാട്ട്സാപ്പി ലൂടെ പ്രചരിപ്പിക്കുന്ന വിദ്വേഷജനകമായ വാർത്തകൾ ദൌർഭാഗ്യക രമായ പല സംഭവങ്ങൾക്കും വഴിതെളിക്കുന്നു ന്നും ഇതിനെതിരെ അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം മൂന്നാം തീയതി കേന്ദ്ര ഗവൺമെന്റ്വാട്ട്സാപ്പിന് കത്തെഴുതിയിരുന്നു ഫോർവേർഡ് ചെയ്തു കിട്ടുന്ന സന്ദേശങ്ങൾ തിരിച്ചറിയാനുള്ള തങ്ങ ളുടെ പുതിയ ഉദ്യമങ്ങൾ അന്നുതന്നെ വാട്ട്സാപ്പ് അധികൃതരും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു

ഗതാഗത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് നേപ്പാൾ വിദേശകാര്യ മന്ത്രി പ്രദീപ്കുമാർ ഗാവാലി കാഠ്മണ്ഡുവിൽ വാർത്താലേഖകരോട് പറഞ്ഞു ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്റ്ററൽ ടെക്നിക്കൽ ആന്റ് എക്കണോമിക് കോർപ്പറേഷൻ ആണ് ബിംസ്റ്റെക് എന്ന് അറിയപ്പെടുന്നത്

ബാലി കംബോഡിയ മ്യാൻമാർ എന്നിവിടങ്ങളാണ് സഞ്ചാരികൾ കൂടുതലായി തെരഞ്ഞെടുക്കുന്നത്

കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലെ പ്രളയബാധിത പ്രദേശങ്ങളാണ് സന്ദർശിക്കുന്നത്

എൻ എൽ വിങ്സ് എന്ന പേരിൽ ബി എസ് എൻ എല്ലിന്റെ പുതിയ ഇന്റർനെറ്റ് ടെലഫോൺ സേവനം കേരളത്തിൽ സജ്ജമായി സിം കാർഡ് ഇല്ലാതെ തന്നെ ആൻട്രോയിഡ് വിൻഡോസ് ആപ്പിൾ ഒഐ

എസ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഫോണുകൾ ടാബ്ലറ്റുകൾ കംപ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ എന്നിവയിൽ നിന്നും ഏത് ഫോണിലേക്കും കോളുകൾ വിളിക്കാനും സ്വീകരിക്കാനും ഈ സംവിധാനത്തിന് കഴിയും വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അധിഷ്ടിത സംവിധ്ാനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ബി എസ്

എൽ ആസ്യഥാനത്ത് നടന്ന ചടങ്ങിൽ ചീഫ് ജനറൽ മാനേജർ ഡോ